വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയുടെ അധ്യക്ഷതയിൽ ഉന്നതതല യോഗം ചേർന്നു

ജന്മനാടിന്റെ കരുതലിലേക്ക് പറന്നൂറങ്ങി പ്രവാസികൾ അബുദാബിയിൽ നിന്നും ദൂബായിൽ നിന്നുമുള്ള വിമാനങ്ങൾ ഇന്നലെ കേരളത്തിലെത്തി

ദുരന്തമുണ്ടായ പ്രദേശത്തിന്റെ സുരക്ഷ യ്ക്കാവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ച് വരികയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ് ശ്രീ അമിത് ഷാ മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ച പ്രധാനമന്ത്രിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും കേന്ദ്രത്തിന്റെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകി

ലോക്ഡൌണിന്റെ ഇളവുകളെ തുടർന്ന് പേപ്പർ മിൽ തുറന്ന് പ്രവർത്തിക്കുന്നതിന് മുന്നോടിയായി വൃത്തിയാക്കുകയായിരുന്നു തൊഴിലാളികൾ മൂന്ന് പേരുടെ നില ഗുരുതരമാണെന്ന് പൊലീസ് അറിയിച്ചു

പരിശോധിച്ചതിൽ ആർക്കും രോഗബാധയുണ്ടായിരുന്നില്ല

എസ്

ഇവരെ കോഴിക്കോട് മഞ്ചേരി മെഡിക്കൽ കോളേജുകളിലേക്ക് മാറ്റി വിവിധ ജില്ലകളിലുള്ളവരെ അതത് ജില്ലകളിലെ ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലേക്ക് അയച്ചു ഗർഭിണികൾ കുട്ടികൾ എന്നിവർക്ക് അവരവരുടെ വീടുകളിലാണ് കാറന്റൈൻ ഒരുക്കിയിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

അടുത്ത ആഴ്ച സൌദിയിൽ നിന്നും അഞ്ച് വിമാനങ്ങൾ ഇന്ത്യയിൽ എത്തുമെന്ന് സൌദിയിലെ അംബാസി ഡർ സയീദ് പറഞ്ഞു

ജോലി നഷ്ടപെട്ട തൊഴിലാളികൾ ഗർഭിണികൾ ഉംറ തീർത്ഥാടകർ തുടങ്ങിയവരാകും ഇതിൽ അധികവും

സമുദ്ര സേതു പദ്ധതിയുടെ കീഴിൽ ആദ്യ ഘട്ടത്തിൽ രണ്ട് കപ്പലുകളിലായി രണ്ടായിരത്തോളം ഇന്ത്യക്കാ രെയാണ് തിരികെ എത്തിക്കുന്നത്

അവസാന രോഗിയുടെ പരിശോധനാ ഫലവും ഇന്നലെ നെഗറ്റീവാ യതോടെയാണ് ഈ നേട്ടം കൈവരിക്കാനായത് അതോടൊപ്പം എല്ലാ രോഗികളും സുഖം പ്രാപിച്ചു എന്ന നേട്ടവും ഉണ്ട്

ആരോഗ്യ വകുപ്പിന്റെ മാനദണ്ഡങ്ങൾ പാലി ച്ചു കൊണ്ടാണ് കോച്ചുകൾ കെയർ സെന്ററുകളാക്കിയത്

ക്ടോവ്വിഡിന്റെ പശ്ചാത്തലത്തിൽ വാഹന നിർമ്മാണ മേഖല നേമീട്ടുന്ന പ്രതിസന്ധികളെ സംബന്ധിച്ച് ഓട്ടോ മൊബൈൽ മാനുഫാക്ച്ചറേഴ്സ് സൊസൈറ്റിയിലെ അംഗങ്ങ ളുമായി നടത്തിയ വീഡിയോ കോൺഫറൻസിംഗിലാണ് അദ്ദേഹം ഇക്കാരൃം അറിയിച്ചത് മേഖല നിലവിൽ നേരിടുന്ന വെല്ലുവിളികളെ കുറിച്ച് വാഹന നിർമ്മാണ കമ്പനി പ്രതിനിധികൾ കേന്ദ്രമന്ത്രിയെ ആശങ്ക അറിയിച്ചു എന്നാൽ സാധ്യമായ എല്ലാ സഹായവും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്ന് ശ്രീ നിതിൻ ഗഡ്കരി ഉറപ്പ് നൽകി

ജയശങ്കർ ജാപ്പനീസ് വിദേശകാരൃ മന്ത്രിയുമായി ചർച്ച നടത്തി ജപ്പാനിൽ കൂടുങ്ങിയ ഇന്തൃക്കാരെ തിരികെ എത്തി ക്കുന്നതാണ് പ്രധാനമായി ചർച്ചു ചെയ്തതെന്ന് ശ്രീ

കൊറോണ പ്രതിരോധത്തിൽ ഇന്ത്യ ജപ്പാൻ പങ്കാളിത്തം വരും ദിവസങ്ങളിൽ ഏറെ പ്രധാനപ്പെട്ടതാണെന്നും അദ്ദേഹം അറിയിച്ചു

ഇ ഇ മെയിൻസ് പരീക്ഷ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്

സംസ്ഥാനത്തിന് തുടർച്ചയായ ആശ്ചാസ ദിനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്

കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള മൂന്ന് പേരുടേയും കാസർഗോഡ് ജില്ലയിലെ രണ്ടു പേരുടേയും പരിശോധനാ ഫലമാണ് നെഗറ്റീവായത്

കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തി ന്റെ മാർഗനിർദേശങ്ങൾ അനുസരിച്ചാണ് കേരളം മുന്നോട്ടുപോ കുന്നതെന്നും ശ്രീ

ഡ്യൂട്ടിക്ക് നിയോഗിച്ചിട്ടുളള ഉദ്യോഗസ്ഥർക്ക് മാത്രമേ വിമാനത്താവളങ്ങളിലും പ്രിസരത്തും പ്രവേശനം അനുവദിക്കൂ

ഏറ്റവും കൂടുതൽ രോഗബാധിതരുള്ളത് അമേരിക്കയിലാണ്

ഇറ്റലിയിലും സ്പെയിനിലും ബ്രിട്ടുനിലും രോഗബാധി തരുടെ എണ്ണം രണ്ട് ലക്ഷം കടന്നു

പിന്നീട് ഇവരെ പോലീസ് ക്യാമ്പുകളിലേയ്ക്ക് മടക്കി അയച്ചു